പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു

ജി

നമാമി ഗംഗാ പദ്ധതി നടത്തിപ്പിലെ നിലവിലെ സ്ഥിതിയും പ്രധാനമന്ത്രി അവലോകനം ചെയ്തു

പി ബീഹാർ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്

ചന്ദ്രശേഖർ ആസാദ് കാർഷിക സർവ്വകലാശാലയും പ്രധാനമന്ത്രി സന്ദർശിച്ചു

ഉച്ചതിരിഞ്ഞ് ചാരുതാർ വിദ്യാമണ്ഡലിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും

തുടർന്ന് ഗുജറാത്ത് പൊലീസ് അക്കാദമിയിലെ പൊലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ്സ് പൊലീസ് കളേഴ്സ് സമ്മാനിക്കും വൈകുന്നേരം കച്ചിൽ നടക്കുന്ന റാൻ ഉത്സവത്തിലും അദ്ദേഹം പങ്കെടുക്കും

നക്സൽ ബാധിത മേഖലകളായ ബഗോദാർ ജമുവ ഗിരിദിഹ് ദുംറി തുന്ദി എന്നിവിടങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രചാരണം അവസാനിക്കും

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ അവസാന വട്ട പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ൂഅമിത് ഷായും വർക്കിംഗ് പ്രസിഡന്റ് ജെ

കോൺഗ്രസ് ആർ

ഡി ജാർഖണ്ഡ് മുക്തി മോർച്ച ഇടതുകക്ഷികൾ എന്നിവയുടെ നേതാക്കളും പ്രചാരണ രംഗത്തു്

അതിനെ തുടർന്ന് കർഫ്യൂവിൽ ഇളവ് വരുത്തി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാലു വരെയാണ് ഇളവ് അക്രമത്തെ തുടർന്ന് ആയിരത്തിലധികം പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു

കാമരൂപ് മെട്രോ ജില്ലയിൽ നിശാനിയമം തുടരുന്നു ദിബ്രുഗഡ് നഗരപ്രദേശത്ത് ഇന്നലെ അഞ്ച് മണിക്കൂർ നിശാനിയമത്തിൽ ഇളവ് വരുത്തിയിരുന്നു തലസ്ഥാനമായ ഗുവഹത്തിയിലും മറ്റും ഭക്ഷണസാധനങ്ങൾ വിതരണം ചെയ്യാൻ സംവിധാനമേർപ്പെടുത്തിയിട്ടു ണ്ട് ജനങ്ങൾ സമാധാനം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ അഭ്യർത്ഥിച്ചു

ഇ

സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള നഗരവൽക്കരണം അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തൽ എന്നിവ വഴി അടുത്ത മൂന്നു ദശകങ്ങൾക്കുള്ളിൽ നിരക്ക് വളർച്ചാ ഉയരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ഉായ കുറഞ്ഞ വളർച്ചാ നിരക്കുകൾ ചെറിയ കാലയളവിലേക്കുള്ളതാണെന്നും അഞ്ച് ട്രില്യൺഡോളർ എന്ന സാമ്പത്തിക നിലയിലേക്ക് എത്താനുള്ള ശരിയായ പാതയിലാണ് ഇന്ത്യയെന്നും ഒരു ചോദ്യത്തിന് മറുപടിയായി ശ്രീ അമിതാഭ് കാന്ത് അറിയിച്ചു

ഇന്തോ പസഫിക് മേഖലയിൽ പങ്കാളിത്ത മുന്നേറ്റം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഇന്തോ പസഫിക് എന്ന ആശയത്തിന് പ്രാധാന്യം വർദ്ധിച്ചുവരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വർഷത്തെ ചർച്ചാ വിഷയം തികച്ചും കാലിക പ്രസക്തമാണെന്ന് ആമുഖപ്രസംഗത്തിൽ കേന്ദ്രസഹമന്ത്രി വി

പരസ്പരം മൃത്സരിക്കുന്നതിലുപരി രാഷ്ട്രങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണത്തിന്റെയും സഹപ്രവർത്തനത്തിന്റെയും മേഖലകൾ കത്തുന്നതിനാണ് പ്രപാധാന്യം നൽകേതെന്ന് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി രത്നോ മർസുറി അഭിപ്രായപ്പെട്ടു

ബോധവൽക്കരണത്തിനായി ദേശീയ തലത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു്

സംബന്ധിച്ച് ഊൌർജ്ജത്തിന്റെ ഉപയോഗം ജനങ്ങളെ ബോധവാന്മാരാക്കുക ഊർജ്ജ ഉപഭോഗം പരിമിതപ്പെടുത്തുക അനാവശ്യ ഊർജ്ജ ഉപഭോഗം ഇല്ലാതാക്കുക പാരമ്പര്യേതര ഊർജ്ജ സംവിധാനങ്ങളും ഊർജ്ജ മാർഗ്ഗങ്ങളും ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രചാരണം നൽകുകയാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉല്പാദനം സൌരോർജ്ജം ഉൌർജ്ജ ഉല്പാദനത്തിന്റെ ഉറവിടമായ ജലത്തിന്റെ സംരക്ഷണം ജൈവ വാതക പ്ലാന്റുകൾ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു

തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റിൽ ഇന്നലെ ജീവനക്കാർ ഊർജ്ജ സംരക്ഷണ പ്രതിജ്ഞ എടുത്തു

മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം ഇതിന് അനുമതി നല്കി

നടപടികൾ പൂർത്തിയാക്കണമെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു

കൂട്ടികൾക്ക് കൌൺസിലിംഗ് ഉൾപ്പടെയുള്ള ഡോക്ടർ പദ്ധതി ക്കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു

ആഗോള രംഗത്തെ വ്യാപാര പ്രതിസന്ധിക്കാണ് ഇതോടെ വിരാമമാകുന്നത് ചില മേഖലകളിൽ അടിസ്ഥാന രംഗത്ത് പരിഷ്ക്കരണം നടത്തുമെന്ന് ചൈന വ്യക്തമാക്കിയിട്ടു് ബൌദ്ധിക സ്വത്ത് സാങ്കേതികവിദ്യാ കൈമാറ്റം കൃഷി ധനകാര്യ സേവന രംഗം വിദശനാണ്യ കൈമാറ്റം എന്നീ രംഗങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ പരിഷ്ക്കരണങ്ങൾ നടത്തുന്നത് ഇറക്കുമതി തീരുവ കുറയ്ക്കാമെന്നും യു

അതിനു പകരമായി അമേരിക്കൻ ഉല്പന്നങ്ങൾ വൻതോതിൽ വാങ്ങാമെന്ന് ചൈന വാഗ്ദാനം ചെയ്തു

ആഭ്യന്തരസെക്രട്ടറി പ്രീതി പാട്ടീൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ പുതിയ മന്ത്രിസഭയിൽ ഇടം നേടുമെന്നാണ് ക്കരുതപ്പെടുന്നത് മുൻ അന്താരാഷ്ട്ര വികസനമന്ത്രി ആലോക് ശർമ്മ ശൈലേഷ് വർമ ഗോവൻ വംശജൻ സുല്ല ബ്രോവർമാൻ പീരേന്ദ്ര ശർമ എന്നിവർ വിജയിച്ചവരിൽ ഉൾപ്പെടും

ഇറാഖിൽ യു എസ് സൈനിക താവളങ്ങളിൽ ഇറാൻ തുടർച്ചയായി നടത്തുന്ന ആക്രമണം ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു

അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഇറാൻ മാനിക്കണമെന്ന് പോംപിയോ പറഞ്ഞു

വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടത്തിനായി ട്രംപ് ദേശീയ താല്പര്യങ്ങൾ ബലികഴിച്ചുവെന്നാണ് ആരോപണം യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്ന ഡ്മോക്രാറ്റ് നേതാവ് ജോ ബൈഡണെതിരെ അന്വേഷണം നടത്തുന്നതിന് ഉക്രൈയിൻ പ്രസിഡന്റ് സെലൻസിക്കുമേൽ സമ്മർദ്ദംച്ചെലുത്തിയെന്ന ആരോപണത്തിലാണ് കമ്മിറ്റി പരിശോധന നടത്തിയ്ത്

അഞ്ച് ഗർഡർ അടങ്ങുന്ന ഒരു റയിൽവേ ഓവർബ്രിഡ്ജ് പൂർത്തിയായിട്ടു് അഞ്ച് ഗർഡർ അടങ്ങുന്ന രാമത്തെ റയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു